വിസമ്മതപത്രം നൽകണമെന്ന ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ

തദ്ദേശ സ്വയംഭരണ പ്പാർഡുകൾ

ആർ

കള്ളം കൈയ്യോടെ പിടികൂടിയ ഘട്ടത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

ഇന്ത്യയ്ക്ക് നാല് സ്വർണ്ണം ടടടടടടടടട സാലറി ചലഞ്ച് ഇൻട്രോ പ്രളയദൂരിതാശ്ചാസത്തിനായി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് വിസമ്മതപത്രം നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു

സാലറി ചലഞ്ചിന്റെ ്പ്പേരിൽ ഗവൺമെന്റ് ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത പിരിവ് അനുവദിക്കില്ലെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു വിസ്റ്റമ്മതപത്രം നൽകാത്തവരുടെ ശമ്പളം പിടിക്കുന്നതിലൂടെ നിർബന്ധിത സ്വഭാവമാണ് കാണിക്കുന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ജീവനക്കാരിൽ നിന്ന് ശമ്പള വിഹിതം വാങ്ങാൻ ഗവൺമെന്റിന് അധികാരമുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു ഈ വിഷയത്തിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉപതിരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ

ആർ ഒ

ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് സംസ്ഥാന ഗവൺമെന്റ് നഷ്ടപരിഹാരമായ അമ്പത് ലക്ഷം രൂപ കൈമാറി സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുക കൈമാറിയത് കോടതി വിധി വേഗത്തിൽ നടപ്പാക്കിയതിന് സംസ്ഥാന ഗവൺമെന്റിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായി ശ്രീ

കേസിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ റിട്ട

ടു ക്യാമ്പയിനിൽ എം

യും നടനുമായ എം

ചലച്ചിത്രസാങ്കേതിക പ്രവർത്തകയും പ്പ് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ട്ട്റുമായ ടെസ് ജോസഫാണ് ആരോപണം ഉന്നയിച്ചത്

ക്യാമ്പയിന്റെ ഭാഗമായി കാസ്റ്റിങ്ങ് ഡയറക്ടറായ ടെസ് ജോസഫിന്റെ ആരോപണത്തെ തുടർന്ന് എം മുകേഷ് എം

എ യുടെ രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ കൊല്ലത്തെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി ദേശീയ പാത ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിരോധം കണക്കിലെടുത്ത് എം

എ യുടെ കൊല്ലത്തെ വസതിക്കും ഓഫീസിനും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി

എസ് സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു

ഉന്നതതലങ്ങളിൽ നടന്ന ഗൂഡാലോചനയുടെ ഫലമായുണ്ടായ അഴിമതിയാണ് ഇതെന്നും ശ്രീ രമേശ് ചെന്നീത്തല കൂട്ടിച്ചേർത്തു കന്റോൺമെന്റ് ഹൌസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് പ്രതിപക്ഷനേതാവ് ഇക്കാര്യം വൃക്തമാക്കിയത് ബ്രൂവറി ഇടപാടിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളെല്ലാം വ്യക്തമായ ഒരു ഗൂഡാലോചനയിലേക്കാണ് വിരൽചൂണ്ടുന്നതെന്നും ഇത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു

ജെ

ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഏകപക്ഷീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

യുടെ നേതൃത്വത്തിൽ നാളെ പന്തളത്തു നിന്ന് ശബരിമല സംരക്ഷണ യാത്ര ആരംഭിക്കും

പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്

സമാനമായ ലക്ഷണം കണ്ടവരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാനും ജില്ലയിൽ ഉടനീളം ജാഗ്രത പുലർത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു സിക്ക വൈറസ് ബാധ സംബന്ധിച്ച് യാതൊരു ആശങ്കയും വേണ്ടെന്ന് കേന്ദ്രം ഏഴ് അംഗ കേന്ദ്ര സംഘത്തെ ജയ്പൂരിലേക്ക് അയച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രി ജെ

വനിതകളുടെ ക്ലബ് ത്രോ ഇനത്തിൽ ഏക്തബ്യാനാണ് ഇന്ന് സ്വർണ്ണം നേടിയത്

ജയന്തി ബെഹ്റ ആനന്ദൻ ഗുണശേഖരൻ മോനു ഗംഗസ് എന്നിവരിലൂടെ ഇന്ത്യക്ക് ഇന്ന് മൂന്ന് വെങ്കല മെഡൽ ലഭിച്ചു

മെഡൽ ജേതാക്കളെ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ട്വീറ്ററിൽ അഭിനന്ദിച്ചു

പി രാമകൃഷ്ണൻ നൈപുണ്യ കർമസേനയെ വ്യാവസായിക വകുപ്പിന് കീഴിൽ സ്ഥിരം സംവിധാനമാക്കുന്നത് ഗവൺമെന്റ് ഗൌരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി

തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ എം

ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി